ചെയ്യുന്നതിൽ അഴിമതി ആരോപിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നിറങ്ങിപ്പോയി

വിഷയത്തിൽ പ്രതിപക്ഷത്തെ എൻ ഷംസുദ്ദീൻ കൊണ്ടുവന്ന അടിയന്തിര പ്രമേയ നോട്ടീസിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഇറങ്ങിപ്പോക്ക്

സ്വർണവില കുറഞ്ഞു